ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പത്രിക പിൻവ്വ്ലിക്കാനുള്ള സമയം ഇന്ന് വൈകിട്ട് അവസ്ഥാനിക്കും

പി യുടെ ് പ്രകടനപത്രികയായ സങ്കല്പ് പത്ര പുറത്തിറക്കി എൻ ഡി എ സുശക്തമായ ഗവൺമെന്റ് കെട്ടിപ്പടുക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ

ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി വിധി അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീംകോടതി നിരാകരിച്ചു

വിഘടനവാദി നേതാവ് മിർവെയ്സ് ഉമർ ഫറൂഖ് ന്യൂഡൽഹിയിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായി ഭീക്രൂസ്ംഘടനകൾക്ക് ഫണ്ട് വിതരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് ഹാജരായത്

വൈകിട്ട് അഞ്ചു മണിവരെ പത്രിക പിൻവലിക്കാം

വിശദവിവരങ്ങളുമായി ലിഖിത വിജയൻ

പത്രിക പിൻവലിച്ചു ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളുടെ അന്തിമചിത്രം വൃക്തമാകു

ഒന്നാംഘട്ട വോട്ടെടുപ്പിന് മൂന്നു ദിവസം ബാക്കിനിൽക്കെ പ്രചരണം ഉച്ചസ്ഥായിയിലെത്തി

ആന്ധ്രപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ആന്റമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്

ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിപാർട്ടി അധ്യക്ഷൻ അമിത്ഷാ മുതർന്ന കേന്ദ്രമന്ത്രിമാരായി രാജ്നാഥ് സിംഗ് അരുൺ ജയ്റ്റ്ലി സുഷമസ്വരാജ് എന്നിവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത് അറുപത് വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ നൽകുമെന്നും കൃത്യമായ തിരിച്ചടവ് എന്ന ഉപാധിയോടെ കർഷകർക്ക് ഒന്നു മുതൽ അഞ്ച് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ വരെ പലിശ രഹിത വായ്പ ലഭ്യമാക്കുമെന്നും പത്രിക യിൽ വാഗ്ദാനമുണ്ട് ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീ ശാക്തീകരണം

മുതിർന്ന ബി

പി നേതാക്കളും പാർലമെന്ററി ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എൻ ഡി എ യുടെ നേതൃത്വത്തിൽ ബി ജെ പി സുശക്തമായ ഗവൺമെന്റ് കെട്ടിപ്പടുക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു

പണം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ് സ്വതന്ത്രവും സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസമാകുന്നതെന്നും കമ്മിഷൻ വൃക്തമാക്കി

എല്ലാ ത്രിയമ്സഭാ മണ്ഡലങ്ങളിലും ദിവ്യാംഗരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ഓരോ ബൂത്തുകൾ വീതമാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ എല്ലാ ബൂത്തുകളും വനിതാ സൌഹൃദമാക്കിയിട്ടുണ്ട്

ജെ

പാർട്ടി പ്രചരണത്തിന്റെ ആദ്യ പ്രമേയം തൊഴിലെടുക്കുന്ന ഗവൺമെന്റ് എന്നതും രണ്ടാമത്തേത് സത്യസന്ധമായ ഗവൺമെന്റ് എന്നതും മൂന്നാമത്തേത് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റ് എന്നതുമായിരിക്കുമെന്ന് ശ്രീ

നിശ്ചയിച്ചു സമയത്ത് കേസിൽ വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് വിധിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിൽ മൂന്നിനാണ് ടിക്ടോക്ക് നിരോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി കേന്ദ്രഗവൺമെന്റിന് നിർദ്ദേശം നൽകിയത് അശ്ലീലപരമായ സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത്

ഭീകര സംഘടനകൾക്ക് ഫണ്ട് വിതരണ്ട് ഉച്യ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹാജരായത് ഡൽഫ്പു വിമാനത്താവളത്തിൽ എത്തിയ മിർവെയ്സിന് കനത്ത സ്യ്രുക്ഷ്യാണ് ഒരുക്കിയതെന്ന് എൻ ഐ എ അധികൃതർ അടിയിച്ചു ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കളായ അബ്ദുൾ ഘനി ഭാട്ട് ബിലാൽ ലോൺ മൌലാനാ അബ്ബാസ് അൻസാരി എന്നിവർ മിർവെയ്സിനെ അനുഗമിച്ചു

സുരക്ഷ പിൻവലിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു

എട്ടുവരിപ്പാതയ്ക്കെതിരേ വിവിധ സംഘടനകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്

കേന്ദ്രപ്രതിരോധമന്ത്രി നിർമല സീതാരാമൻ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് സുരക്ഷാ ഭീഷണി സേനാ വിന്യാസം ഉസ്സെനികക്ഷേമം തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും

നിയോഗിക്കപ്പെട്ടവരാണ് ജവാൻമാർ

നീൽസൺ നൽകിയ സേവനത്തിന് ട്രംപ് ട്വിറ്ററിൽ നന്ദി അറിയിച്ചു നികുതി അതിർത്തി സംരക്ഷണ കമ്മീഷണർ കെവിൻ മാക് അലിനന് താൽക്കാലിക ചുമതല നൽകിയതായും കെവിൻ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും ട്രംപ് പറഞ്ഞു